കേരളത്തിൽ ഇന്നുമുതൽ മൂന്ന് ദിവസം കനത്തമഴയ്ക്ക് സാധ്യ ത

ചൊവ്വാഴ്ച വൈകീട്ടോടെ ചുഴലിക്കാറ്റ് വടക്കൻ തമഴ്നാടിന്റെയും തെക്കൻ ആന്ധ്ര പ്രദേശിന്റെയും തീരത്തെത്തു മെന്നാണ് കണക്കാക്കുന്നത് എന്നാൽ തീര മേഖലയിൽ നാശ മുണ്ടാക്കുന്ന തരത്തിൽ കാറ്റടിക്കാൻ സാധ്യതയില്ലെന്നാണ് വില യിരുത്തൽ എന്നാൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ തമിഴ്നാടിന്റെയും ആന്ധ്രയുടെയും തീരപ്രദേശത്ത് സാമാന്യം ശക്തമായ മഴയുണ്ടാ കും കേരളത്തിൽ ഇന്ന് മുതൽ മൂന്ന് ദിവസം മഴയും കാറ്റും ഉണ്ടാ കാൻ സാധ്യതയുണ്ട് നാളെ എറണാകുളം ഇടുക്കി തൃശൂർ വയ നാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മറ്റന്നാൾ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ശക്തമായ മഴയുണ്ടാകുമെന്ന യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമായ ഗവിയിൽ മൂന്ന് ദിവസത്തേക്ക് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടു ത്തി ന്യൂനമർദ്ദത്തെ തുടർന്ന് ശക്തമായ മഴയ്ക്കും ഉരുൾപൊട്ട ലിനും സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറി യിപ്പ് നൽകിയതിനെ തുടർന്നാണ് വിലക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാംഘട്ട പോളിങ് നാളെ

ഇതോടൊപ്പം പശ്ചിമബംഗാളിലെ എട്ട് മധ്യപ്രദേശ് ഒഡീഷ എന്നിവിടങ്ങളിലെ ആറ് വീതം സീറ്റിലും ബീഹാറിലെ അഞ്ച് ജാർഖണ്ഡിലെ മൂന്ന് ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് മണ്ഡലത്തിലുമാണ് വോട്ടെടുപ്പ് ഇന്നലെ പ്രചാരണ സമാപനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി തുടങ്ങിയവർ ഉത്തർപ്ര ദേശിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംബന്ധിച്ചു

ജെ പി അധ്യ ക്ഷൻ അമിത്ഷാ ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലും പങ്കെ ടുത്തു

കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് എൻ സി പി കക്ഷി കളുടെ നേതാക്കളാണ് പരാതി നൽകിയത് ചിഹ്നത്തിന് താഴെ പാർട്ടിയുടെ പേര് സൂചിപ്പിക്കുന്നത് തെരഞ്ഞെ ടുപ്പ് ചട്ടത്തിന്റെ ലംഘനമാണെന്ന് കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിങ്വി ന്യൂഡൽഹിയിൽ പറഞ്ഞു അടുത്ത് ഘട്ട തെരഞ്ഞെ ടുപ്പിന് മുമ്പ് ഇത്തരം യന്ത്രങ്ങൾ ഒഴിവാക്കണമെന്നും സിങ്വി ആവ ശ്യപ്പെട്ടു കേരളത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ബി

പി പ്രവർ ത്തകർ വൈകീട്ട് തിരിച്ചെത്തുമെന്ന് ഉറപ്പില്ലെന്ന പ്രധാനമന്ത്രിയു ടെ പ്രസ്താവനയിൽ എന്താണ് തെറ്റെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള കോഴിക്കോട്ട് ചോദിച്ചു കേ രളത്തിലെ അവസ്ഥ ശരിക്കും മനസ്സിലാക്കിയതുകൊണ്ടാണ് പ്ര ധാനമന്ത്രി അങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ജെ പി നേതാക്കൾക്കെതിരെ എൽ ഡി എഫ് നിരവധി കേസു കളാണ് എടുത്തത് രാഷ്ട്രീയ എതിരാളികളെ തെരഞ്ഞുപിടിച്ച് അ ക്രമിക്കുകയും കേസിൽ കുടുക്കുകയും ചെയ്യുന്ന ഈ സമീപന ത്തെ പ്രധാനമന്ത്രി തുറന്നുകാണിക്കുകയായിരുന്നു സത്യം പുറത്തു പറയുമ്പോൾ വിറളി പൂണ്ടിട്ട് കാര്യമില്ലെന്നും ശ്രീധരൻപിള്ള മാ ധ്യമങ്ങളോട് പറഞ്ഞു വ്യാപകമായ കള്ളവോട്ടിലൂടെ ഇടതുപക്ഷം ലോക്സഭാ തെര ഞ്ഞെടുപ്പിന്റെ ജനഹിതം അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് വൃക്തമായ തായി മുസ്ലിംലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

ആവശ്യമായിടങ്ങളിൽ റീപോളിംഗും കള്ളവോ ട്ടു ചെയ്തവർക്കും അതിനു കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും കർശന നടപടിയെടുത്ത് വിശ്വാസ്യത വീണ്ടെടുക്കണമെന്നും കെ

എ മജീദ് കോഴിക്കോട് ആവശ്യപ്പെട്ടു കണ്ണൂരിൽ പോളിങ് ഓഫീസറാണ് സിപിഐഎമ്മിനെ കള്ള വോട്ടിന് സഹായിച്ചതെന്ന് യു

എഫ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ കെ സു ധാകരൻ കണ്ണൂരിൽ ആരോപിച്ചു പ്രിസ്നൈഡിങ് ഓഫീസറെ കാഴ്ച ക്കാരാക്കിയാണ് കള്ളവോട്ട് ചെയ്തതെന്നും സുധാകരൻ പറഞ്ഞു ഓപ്പൺവോട്ട് ചെയ്തതിനെയാണ് കള്ളവോട്ടായി വ്യാഖ്യാനിക്കു ന്നതെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാ ജൻ കണ്ണൂരിൽ വ്യക്തമാക്കി പരസഹായമില്ലാതെ വോട്ട് ചെയ്യാൻ സാധിക്കാത്തവരുടെ കൂടെ പോളിങ് ഉദ്യോഗസ്ഥരുടെ അനുമതി യോടെ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങലാണ് കള്ളവോട്ടായി പ്രചരിപ്പി ക്കുന്നതെന്ന് ജയരാജൻ പറഞ്ഞു ഒളിക്യാമറാ വിവാദവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ യുഡി എഫ് സ്ഥാനാർഥിയും സിറ്റിംഗ് എം പിയുമായ എം കെരാഘവ നിൽ നിന്നും ജില്ലാ കലക്ടർ സാംബശിവ റാവു വിശദാംശങ്ങൾ ആരാഞ്ഞു

വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ മുന്നോ ടിയായാണ് എം കെ രാഘവനിൽ നിന്ന് വിശദീകരണം തേടിയത് മാധ്യമ പ്രവർത്തകരിൽ ചിലർ വിധികർത്താക്കളും വിമർശകരു മായി മാറിയെന്ന് മന്ത്രി ടി

സീ നിയർ ജേർണലിസ്റ്റ് ഫോറം കോഴിക്കോട് ജില്ലാ സമ്മേളനം ഉദ് ഘാടനം ചെയ്യുകയായിയിരുന്നു മന്ത്രി സ്വന്തം അഭിപ്രായങ്ങൾ മ റ്റുള്ളവർക്ക്മേൽ കുത്തിവെക്കുന്ന രീതിയാണ് പലരും പിൻതുടരു ന്നത് ഇങ്ങനെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെ തിരുത്താൻ മുതിർന്ന മാധ്യമ പ്രവർത്തകർ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു സാങ്കേതിക പ്രശ്നങ്ങൾമൂലം തകരാറിലായ എയർ ഇന്ത്യ വിമാന സർവീസുകൾ ഇന്നോടെ സാധാരണ ഗ്രിയിലാകുമെന്ന് ചെയർമാൻ അശ്വനി ലൊഹാനി അറിയിച്ചു സോഫ്റ്റ്വെയർ സംവി ധാനം ആറ് മണിക്കൂറോളം തകരാറിലായതിനെ തുടർന്നാണ് സർവീ സുകൾ നിർത്തേണ്ടി വന്നത്

ചന്ദ്രനഗർ കൂട്ടുപാത ജംഗ്ഷനിൽ നിന്ന് തൃശൂർ സ്വദേ ശികളായ രണ്ട് പേരെയും ആലത്തൂരിൽ നിന്ന് എറണാകുളം സ്വദേ ശികളായ രണ്ടുപേരെയുമാണ് കഞ്ചാവ് സഹിതം കസ്റ്റഡിയിലെടു ത്തത്

ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ജയ്പൂരിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഏഴു വിക്കറ്റിന് തോൽപ്പിച്ചു ഇന്ന് വൈകീട്ട് ഡൽഹി ക്യാപ്പിറ്റൽസ് ബാംഗ്ലൂർ റോയൽ ചാല ഞ്ചേഴ്സിനെയും രാത്രി കൊൽക്കത്തിന്റൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെയും നേരിടും ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷമി രവീന്ദ്ര ജഡേജ പൂനം യാദവ് എന്നിവരെ അർജ്ജുന അവാർഡിന് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ശുപാർശ ചെയ്തു സുപ്രീം കോടതി നിയോഗിച്ച ഇടക്കാല് ഭർണസമിതി യോഗത്തിലാണ് തീരു മാനം ചൈനയിലെ ബെയ്ജിങ്ങിൽ ഏഷ്യൻ ഗുസ്തി ചാംപ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഗുർപ്രീത് സിങ്ങിനും സുനിൽകുമാറിനും വെള്ളി

ലഹരിക്കെതിരെ എക്സൈസ് വകുപ്പിന്റെ വിമുക്തി പദ്ധതിയുടെ ഭാഗമായി മലബാർ മാരത്തൺ ആരംഭിച്ചു കോഴിക്കോട് ബീച്ചി ലാണ് പരിപാടി ഹാഫ് മാരത്തൺ ഫൺ മാരത്തൺ എന്നീ വിഭാ ഗങ്ങളിലാണ് മത്സരം വിദ്യാർഥികളെ നീന്തൽ പരിശീലിപ്പിക്കുന്നതിന് സംസ്ഥാന കാ യിക വകുപ്പ് അഞ്ച് ജില്ലകളിൽ ആരംഭിക്കുന്ന സ്പ്ലാഷ് പദ്ധതി തൃ ശൂരിൽ ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയിൽ നടപ്പിലാക്കും

ഈ വർഷത്തെ ഒ

വി സാഹിത്യപുരസ്കാരം മഹാകവി അക്കിത്തതിന് നൽകും മലയാള സാഹിത്യത്തിന് നൽകിയ സമ ഗ്രസംഭാവനകൾ മുൻനിർത്തിയാണ് മൂന്ന് ലക്ഷം രൂപയുടെ പുര സ്കാരം യുവ സാഹിത്യ പുരസ്കാരത്തിന് അനഘ കോലത്ത് അർഹയായി

അന്തർസംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകളിൽ നടത്തുന്ന വ്യാപകമായ പരിശോധനയിൽ പ്രതിഷേധിച്ച് കണ്ണൂർജില്ലയിലെ അന്തർ സംസ്ഥാന്ട്ടൂറിസ്റ്റ് ബസ്സുകൾ ഇന്ന് പണിമുടക്കും പരിശോധന യുടെ പേരിൽ അമിതമായി പിഴ ചുമത്തുന്നതായി ബസ്സുടമകൾ കുറ്റപ്പെടുത്തി ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ ഭൂരഹിതരായ തോട്ടം തൊഴിലാളികളുടെ ഗവൺമെന്റ് ഭൂമി കൈയേറ്റ സമരം കൂടുതൽ ശക്തമാക്കാൻ സമരസമിതി തീരുമാനിച്ചു കുടിൽകെട്ടി സമരത്തോ ടൊപ്പം തെരുവ് സമരവും തുടങ്ങാനാണ് തൊഴിലാളികൾ തീരുമാ നിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച സമരത്തിൽ കുടി ലുകൾ പൊളിച്ചു നീക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർ ശ്രമിച്ചെങ്കിലും എതിർപ്പിനെ തുടർന്ന് മടങ്ങുകയായിരുന്നു സമരത്തെ അവഗണിച്ച് പരാജയപ്പെടുത്താൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കു കയാണെന്ന് തൊഴിലാളികൾ കുറ്റപ്പെടുത്തി

പാലക്കാട് കഞ്ചിക്കോട്ട് കാട്ടാന് ആക്രമണത്തിൽ മരിച്ച ഫോറസ്റ്റ് വാച്ചറുടെ കുടുംബത്തിന് ആദ്യഘട്ടമായി ഗവൺമെന്റ് അഞ്ച് ലക്ഷം രൂപ ധനസഹായം കൈമാറി

എച്ച് സ്മാരക അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രാവിലെ പ്രസ്ക്ത ബ്ബിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകീട്ട് നെയ്യാറ്റിൻകര പെരുംപഴുതൂരിൽ സംസ്കരിക്കും